മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കണമെന്ന് സി

ജി യോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേയ്ഖ് ഹസീന കൊൽക്കത്തയിൽ എത്തി

ന്യൂഡൽഹിയിൽ അക്കൌണ്ടന്റ് ജനറൽമാരുടെയും ഡെപ്യൂട്ടി അക്കൌണ്ടന്റ് ജനറൽമാരുടെയും യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏജൻസികളുടെ ഗവൺമെന്റ് പ്രതിച്ഛായയായി സി എ ജി വർത്തിക്കുകയും അവരുടെ പരിമിതികൾ തുറന്നുകാട്ടുകയും വേണം ഇന്ത്യ അതിവേഗം അഞ്ച് ട്രില്യൺ ഡോളർ വളർച്ചയുള്ള സമ്പദ് വ്യവസ്ഥയായി മാറുകയാണെന്നും സി

ജി ക്കും എ ജി മാർക്കും ഇതിൽ പ്രമുഖ പങ്കാണ് വഹിക്കാനുള്ളതെന്നും ശ്രീ

പൂഞ്ച് രജൌരി ജില്ലകൾക്കായി രജൌരി സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് ഇന്നലെ മുതൽ റാലി ആരംഭിച്ചത്

റിക്രൂട്ട്മെന്റ് റാലിയിൽ യുവാക്കൾ കൂടുതലായി എത്തുന്നതിൽ സന്തോഷമുന്നെ് ബി

ഐ

ജനങ്ങളുടെ താൽപരൃത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകിയാണ് ഭൂനയം രൂപീകരിച്ചതെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഭൂമി വിഭജനത്തിനും സ്ഥല നിർണയത്തിനും നിലവിലുള്ള സങ്കീർണത ഒഴിവാക്കാൻ പുതിയ നയം സഹായകമാകുമെന്നും ശ്രീ സോനോവാൾ അഭിപ്രായപ്പെട്ടു

വായുമലിനീകരണത്തിന് വിവിധ നഗരങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങളാണ് ഉളളത്

ദ്രവീകൃത പെട്രോളിയം ഗൃാസ് സി

ജി എഥനോൾ തുടങ്ങിയ ശുദ്ധമായ ഇന്ധനങ്ങൾ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുമെന്നും ശ്രീ

ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രൂപീകരിച്ചു ഫിലിം ബസാറിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര മേളയിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവ്വഹിച്ചു ദക്ഷിണേഷ്യൻ ചലച്ചിത്ര സമൂഹവും അന്താരാഷ്ട്ര ചലച്ചിത്ര തമ്മിലുള്ള സാമ്പത്തികവും സർഗ്ഗാത്മകവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ഫിലിം ബസാറിന്റെ ലക്ഷ്യം ലഞ്ച് ബോക്സ് മാർഗരിത്ത വിത്ത് എ സ്ട്രോ ചൌത്തി കൂത്ത് കിസ മിസ് ലൌലി ദം ലഗാകെ ഹൈഷ തിത്തി തുടങ്ങിയ ചിത്രങ്ങളുടെ പിറവിയിൽ ഫിലിം ബസാർ നിർണായക പങ്കു വഹിച്ചിട്ടു്

ഹിന്ദി പ്രക്ഷേപണത്തിനു തൊട്ടു പിന്നാലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും

ഈ ഫ്ളൈറ്റിന്റെ വരവോടെ ക്കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ളൂരിലേക്ക് പുതിയ സർവ്വീസ് എന്ന എക്കാലത്തെയും ആവശ്യത്തിന് താത്കാലികമായെങ്കിലും പരിഹാരമായിരിക്കുകയാണ്

പ്രധാന പ്രതിപക്ഷമായ ആർ

യുടെയും കോൺഗ്രസിന്റെയും ഗവൺമെന്റിനു നേരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്നാണ് കണക്കാക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന സ്ഥിതി മോശമായതും പട്നയിലെ വെള്ളപ്പൊക്കവും പ്രതിപക്ഷം വിഷയമാക്കും

ഇന്നലെ പവാർ ഡൽഹിയിൽ നിന്നും മടങ്ങീയെത്തിയ ശേഷമായിരുന്നു കൂടിക്കാഴ്ച്ചു

ചർച്ചുകൾ ഏക് മിന്സോടെയാണ് പൂർത്തിയാക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് പൃമ്പൂരാജ് ചവാൻ പറഞ്ഞു ഇന്ന് കോൺഗ്രസൂം എൻസിപിയും ശിവസേനയുമെല്ലാം മുംബൈയിൽ പ്രത്യേകം യോഗങ്ങൾ ചേരുന്നുണ്ട്

അതേസമയം കാർഷികാവശിഷ്ടങ്ങൾ കുറഞ്ഞ ചെലവിൽ പുനരുപയോഗിക്കുക എന്ന ആശയവുമായി പിലിഭിത്ത് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വന്നു ഇന്ത്യൻ അഗ്രിക്കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരാണ് ഈ പുനരുപയോഗ ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത്

സി ഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലി ശ്രീമതി ഹസീനയെ കൽക്കത്ത വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഇന്നാരംഭിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് രാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം വീക്ഷിക്കാനാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി കൽക്കത്തിയിലെത്തിയത്

കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധൃത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു

പ്രസിഡന്റ് ഗോതബയ രജപക്സെ നിയുക്ത മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു